ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം പ്രധാന മന്ത്രി നരേന്ദ്രമോദി നാളെയെത്തും

ള ൽ ൾ സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ആറു ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിലായി

വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ് കനത്ത വേനൽചൂ ടിലും ഊർജ്ജിതമായ പ്രചാരണമാണ് എല്ലായിടങ്ങളിലും നട ക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തും തിരുവനന്തപുരത്ത് വൈകിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും സാമ്പത്തിക തകർച്ച അഴിമതി കാർഷിക മേഖലയിലെ വില യിടിവ് എന്നീ മൂന്ന് വിഷയങ്ങളാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പ്രധാനമായി സ്വാധീനിക്കുകയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു കണ്ണൂരിൽ മാധ്യമ പ്രവർത്ത കരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും അടുത്ത ഗവ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഒരിക്കലും അക്രമത്തെ അനുകൂലിക്കുന്നില്ലെന്നും അഹിംസയാണ് പാർട്ടി നയമെന്നും രാഹുൽ വ്യക്തമാക്കി കണ്ണൂരിൽ യു ഡി എഫ് നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു

തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാ ഭസ്മം നിമജ്ഞനം ചെയ്ത പാപനാശിനിയിൽ ബലിതർപ്പണം നട ത്തിയത് തുടർന്ന് അദ്ദേഹം ബത്തേരിയിൽ യു ഡി എഫ് പൊതുയോഗ ത്തിൽ പങ്കെടുത്തു വയനാടിന്റെ സഹോദരനും മകനുമാണ് താനെന്ന് രാഹുൽ പറഞ്ഞു അല്പകാലത്തേക്കല്ല ഇത് എല്ലാ കാലത്തേക്കുമായിരിക്കുമെന്നും വയനാടിനെ പ്രതിനിധീകരിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽഗാന്ധി അല്പസമയത്തിനകം കോഴിക്കോട് തിരുവമ്പാ ടിയിൽ യു ഡി എഫ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും

മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ കാണു ന്നതെന്ന് അവർ വാർത്താ ഏജൻസിയായ എ എൻ ഐയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കേന്ദ്രഭരണത്തിലൂടെ രാജ്യത്ത് വലിയ പുരോഗതിയാണുണ്ടായതെന്ന് കേന്ദ്രമന്ത്രി തവൻചന്ദ് ഗഹ്ലോട്ട് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറ ഞ്ഞു വികസന രംഗത്തുണ്ടായ നേട്ടം ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു അമേഠിയിലെ പരാജയ ഭീതി കാരണമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് അമേഠിയിലെ ജനങ്ങളുടെ അവസ്ഥ യാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും പ്രാദേശിക പാർട്ടികളുടെയും മതേതര ബദൽ ലോക്സഭാ തെരഞ്ഞെടുപ്പി നുശേഷം നിർണ്ണായക ശക്തിയാകുമെന്ന് എൽ ജെ ഡി ദേശീയ സെക്രട്ടറി വർഗീസ് ജോർജ്ജ് പറഞ്ഞു കാസർക്കോട് തൃക്കരി പ്പൂരിൽ എൽ ഡി എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ശബരിമല പരാമർശത്തിനെതിരെ സിപിഐഎം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീ സർക്കുമാണ് പ്രാതി നൽകിയത് തമിഴ്നാട് കർണാടക എന്നി വിടങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാ തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മൂന്നിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും വൈകീട്ട് നാലിന് കോട്ടക്കടവ് അഞ്ചിന് പെരുമണ്ണ ആറിന് ചേള ന്നൂർ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും വ്യക്തിപരമായി അധിക്ഷേപിച്ച് സംസാരിച്ചുവെന്നാരോപിച്ച് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ ആല ത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കോടതിയിൽ ഹർജി നൽകി ആലത്തൂർ കോടതിയിലാണ് ഹർജി നല്കിയത് പരാതി നൽകിയിട്ടും പൊലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ചാണ് സ്ഥാനാർത്ഥി കോടതിയെ സമീപിച്ചത് മുസ്ലീം ലീഗിനെ വൈറസ് എന്നാരോപിക്കുന്ന ഉത്തർ പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രണ്ട് ട്വീറ്റുകൾ ട്വിറ്റർ നീക്കി മുസ്ലീം ലീഗിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദേ ശത്തെ തുടർന്നാണ് യോഗിയുടെ ട്വീറ്റിനെതിരെ നടപടിയെടു ത്തത് കേന്ദ്രമന്ത്രി ഗിരിരാജ്സിംഗ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ എന്നിവരുടെ ട്വീറ്റുകളും ട്വിറ്റർ നീക്കി യിട്ടുണ്ട്

തമിഴ്നാ ട്ടിലെ വെല്ലൂർ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി

രാത്രി എട്ടിന് ഹൈദരാബാദിലാണ് മത്സരം കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തല ത്തിൽ നാളെ വൈകുന്നേരം ആറ് മണി വരെ കണ്ണൂർ ജില്ലയിലെ അതിർത്തി താലൂക്കുകളായ തളിപ്പറമ്പ് പയ്യന്ന ൂർ ഇരിട്ടി തലശ്ശേരി എന്നിവിടങ്ങളിൽ ജില്ലാ കലക്ടർ ഡ്രൈഡേ പ്രഖ്യാപിച്ചു പുതുച്ചേരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കു ന്നതിനാൽ നാളെ വൈകിട്ട് ആറ് മണി വരെ കണ്ണൂർ ജില്ലയിലെ മാഹിയോട് ചേർന്നുകിടക്കുന്ന പ്രദേശങ്ങളിലും കലക്ടർ ഡ്രൈഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാഹി നിയോജക മണ്ഡലാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അഞ്ച് കിലോമീറ്റർ പ്രദേശങ്ങളിലെ മദൃശാലകൾ ഹോട്ടലുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യമോ മറ്റ് ലഹരി പദാർഥങ്ങളോ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല

തേനി മണ്ഡലത്തിലെ ആണ്ടിപ്പട്ടിയിൽ ടി ടി വി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവിന്റെ കയ്യിൽ നിന്നും കണക്കിൽപ്പെടാത്ത ഒന്നര കോടിയോളം രൂപ പിടിച്ചെടുത്തു ഇന്നലെ ഡി എം കെ നേതാവ് കനിമൊഴിയുടെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു അതേസമയം റെയ്ഡ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാ ണെന്നും പിന്നിൽ പ്രധാനമന്ത്രിയും ബി ജെ പിയുമാണെന്ന് ഡി എം കെ കുറ്റപ്പെടുത്തി റെയ്ഡിനെതിരെ കോടതിയെ സമീപിക്കു മെന്ന് ഡി എം കെ നേതാക്കൾ അറിയിച്ചു

വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളംബരം ചെയ്ത് വോട്ടർമാരെ പോളിങ് ബൂത്തിലെ ത്തിക്കാൻ ഓട്ടം തുള്ളൽ അവതരണവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം സ്വീപിന്റെ നേതൃത്വ ത്തിലാണ് നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഓട്ടം തുള്ളൽ സംഘടിപ്പിച്ചത്

ഇതിനായി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി

സ്വർണ്ണവില ഇന്നും കുറഞ്ഞു

തുടർച്ചയായി രണ്ടാം ദിവസമാണ് ആഭ്യന്തര വിപണിയിൽ വില താഴുന്നത്

മലപ്പുറം സ്വദേശികളായ ജാബിർ നാരായണൻ എന്നിവരാണ് പിടിയിലായത്

പശ്ചിമബംഗാളിൽ നിന്നാണ് അരി എത്തി ച്ചതെന്ന് പരിശോധനയിൽ വ്യക്തമായതായി പൊലീസ് അറിയി ച്ചു

ഇതിനായി റീ അലോട്ട് മെന്റ് നൽകിയിട്ടുണ്ട് ഓണലൈൻ മുഖേന രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്നു സംഭരിക്കുന്ന നെല്ലിന്റെ തൂക്കം മില്ലുകാർ കുറയ്ക്കുന്നുവെന്ന പരാതിയിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കേരള തമിഴ്നാട് അതിർത്തിയിൽ പ്രെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ മംഗളാദേവി ക്ഷേത്രത്തിൽ ഉത്സവം മറ്റ ന്നാൾ നടക്കും ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിൽ പരാ മർശിക്കുന്ന കണ്ണകിയാണ് പ്രതിഷ്ഠ